സാങ്കേതിക് ഉച്ച്കോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ്നാളെ ഉദ്ഘാടനം ചെയ്യും

വർഗക്കാരുടെ സംവരണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു

എതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആരോഗൃ മന്ത്രി കെ കെ ശൈലജ

രാജ്യത്തു ധ്യൂർാള്ം സംരംഭങ്ങൾ സൃഷ്ടിക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക് വികസനത്തിന് കരുത്തു് പകരാനും ഇതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ നാലാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അതിനാൽ രാജ്യത്തിൻറെ വളർച്ചയ്ക്കും വികസനത്തിനുമായി കഴിവുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ശ്രീ കോവിന്ദ് വിദ്യാർഥികളോട് ആവശ്യപ്പെട്ടു ആഗോള വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കും വിധം വിദ്യാർഥികളിൽ യഥാർത്ഥ അറിവ് സൃഷ്ടിക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കർണാടക സർക്കാർ സർക്കാറിന്റെ പ്രത്യേക വിഷൻ ഗ്രൂപ്പ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്സ് ഓഫ് ഇന്ത്യ എംഎം ആക്ടീവ് സൈ ടെക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും

കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ ആദ്യമായാണ് ഇരുരാജ്യങ്ങളും തമ്മി ലുള്ള ഉച്ചകോടി നടക്കുന്നത് ്കോവിഡിന് ശേഷമുള്ള ലോകത്ത് ഇന്ത്യ ലക്സംബർഗ് സഹ്ക്രണം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഉഭയകക്ഷി താൽപര്യമുള്ള് വിഷയങ്ങൾ ഇരുഭരണാധികാരികളും ചർച്ച ചെയ്യും അന്താർാഷ്ട്ര് ആഗോള പ്രശ്നങ്ങളിലും ഇരുരാജ്യ ങ്ങളും അഭിപ്രായം പങ്കുവെക്കും

എം

കോവിഡ് വെല്ലുവിളി കാര ണം പ്രതിസന്ധിയിലായ വഴിയോരകച്ചവടക്കാർക്ക് സംരംഭങ്ങൾ പുനരരാരംഭിക്കാൻ പദ്ധതിയിലൂടെ കേന്ദ്രസർക്കാർ സഹായം നൽ കി വരികയാണ്

സുതാര്യത ഉത്തരവാദിത്തം സ്ഥിരത എന്നിവയോടെ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ പ്രത്യേക വെബ് പോർട്ടൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പരിക്കേറ്റ്വർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി എന്നിവരും അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി

ബെല്ലാരി ജില്ലയെ വിഭജിച്ച് വിജയനഗര ജില്ല രൂപീകരിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്

എല്ലാ വർഷവും അഡ്മിഷ്ടൻ ത്ററുമാറാക്കാൻ ചില മാനേജുമെന്റുകൾ ശ്രമിക്കുന്നുതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല്

അതിനിടെ സംസ്ഥാനത്ത് മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പൂർത്തിയാകുകയാണ് പത്രികാ സമർപ്പ ണത്തിനൊപ്പം പ്രചാരണവും പുരോഗമിക്കുന്നു

ശ്രീ ഇബ്രാഹിംകുഞ്ഞ് ചികിത്സയിലുള്ള നെട്ടൂരിലുള്ള സ്വകാര്യആശുപത്രിയിലെത്തിയാണ് ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്

ഇന്നലെയാണ് ബിനീഷിര്ന എൻ സി

പ്ലാസ്മ ചികിൽസ സംബന്ധിച്ച് ഐ സി എം ആർ നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദേശം നൽകിയത്

ദേശീയ ഖനന ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി